നാളെ രാവിലെ നിയമസഭ വജ്ര ജൂബിലി സമാപനത്തോട് അനുബന്ധിച്ച് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും

പി വി സിന്ധുവും സ്പെയിൻതാരം കരോലിന മാരിനും ഏറ്റുമുട്ടും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് വൈകീട്ട് കേരളത്തിലെത്തും ഇന്ന് അദ്ദേഹത്തിന് പൊതുപരിപാ ടികളൊന്നുമില്ല വൈകീട്ട് അഞ്ചിന് പ്രത്യേക വിമാനത്തിൽ തിരുവന ന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി രാത്രി രാജ്ഭവനിൽ തങ്ങും

വൈകീട്ട് അഞ്ചരയ്ക്ക് പ്രത്യേക വിമാ നത്തിൽ കൊച്ചിയിലേക്ക് പോകുന്ന രാം നാഥ് കോവിന്ദ് രാത്രി എറണാ കുളം ഗസ്റ്റ് ഹൌസിൽ താമസിക്കും ചൊവ്വാഴ്ച രാവിലെ എറണാകുളം ബോൾഗാട്ടി പാലസിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ജഡ്ജിമാർക്കു മൊപ്പം പ്രാതൽ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് ഹെലികോപ്ടറിൽ തൃശൂരിലേക്ക് പോകും

അവിടെനിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന രാം നാഥ് കോവിന്ദ് ഗുരുവായൂർ ക്ഷേത്രത്തിലും മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലും ദർശനം നടത്തും രണ്ടേമുക്കാലോടെ കൊച്ചിയിൽ തിരിച്ചെത്തി പ്രത്യേക വിമാ നത്തിൽ രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ കുട്ടനാട് പാക്കേജ് പുന രുജ്ജീവിപ്പിക്കുന്നതിന് ഇന്ന് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ അദ്ധ്യക്ഷ തയിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു ഇതിനായി സംസ്ഥാനഫണ്ടും കേന്ദ്രഫണ്ടും ഉപയോഗിച്ച് ജലനിയന്ത്രണ സംവിധാനം നടപ്പാക്കാൻ യോഗം നിർദ്ദേശിച്ചതായി മന്ത്രി ജി സുധാകരൻ മാധ്യമങ്ങളോട് പ്പറഞ്ഞു ഇതിന് കേന്ദ്രസഹായം തേടും പഴയ കുട്ട നാട് പാക്കേജ് പൂർണ്ണമായി നടപ്പാക്കാനാകാത്തതാണ് ഇപ്പോഴത്തെ വൻവെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന് യോഗം വിലയിരുത്തി

ഇതോടൊപ്പം പുതു തായി കണ്ടെത്തിയ പ്രശ്നങ്ങൾക്കും പരിഹാരം ആകുന്നതരത്തിൽ പാക്കേജ് നട്പ്പിലാക്കണമെന്നാണ് യോഗത്തിലെ തീരുമാനം കുട്ടനാട് മേഖലയിലെ പുതിയ കെട്ടിടങ്ങൾ ഭൂനിരപ്പിൽനിന്ന് രണ്ടുമീറ്റർ ഉയർത്തി നിർമ്മിക്കണമെന്ന നിർദ്ദേശവും യോഗത്തിലുണ്ടായി വെള്ളപ്പൊക്കദു രിതം നേരിടുന്നവർക്ക് ഭക്ഷണവും മരുന്നുമടക്കം അവശ്യസാധനങ്ങൾ എത്തിച്ചുനൽകാൻ കഴിഞ്ഞതായി യോഗത്തിൽപങ്കെടുത്ത മന്ത്രി കെ

മന്ത്രിമാരായ വി

സുനിൽകുമാർ മാത്യു ടി തോമസ് പി തിലോത്തമൻ ചീഫ് സെക്രട്ടറി തുടങ്ങിയവരും മേഖല യിലെ ജനപ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം യോഗത്തിൽനിന്ന് വിട്ടുനിന്നു ആലപ്പുഴ ജില്ലയിലെത്തിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയ ദുരിതത്തിൽനിന്ന് കരകയറിയിട്ടില്ലാത്ത കൂട്ടനാട് സന്ദർശിക്കാത്തത് ശരി യല്ലെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി

എന്തു ന്യായീകരണങ്ങൾ നടത്തിയാലും നടപടി ദൌർഭാഗൃകരമായി പോയെന്ന് അദ്ദേഹം പറഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി മാത്യു ടി തോമസ് ആലപ്പുഴയിൽ പറഞ്ഞു പ്രകടപരതയിൽ കാര്യമില്ലെന്ന് അദ്ദേഹം വൃക്തമാക്കി കാലവർഷക്കെടുതി രൂക്ഷമായ ആലപ്പുഴ ജില്ലയിൽ മെഡിക്കൽ സർവ്വേയ്ക്ക് ഇന്ന് തുടക്കമാകും

സ്വാതന്ത്യ ദിനാഘോഷത്തിനിടെ ഡൽഹിയിൽ ഭീകരാക്രമണ സാധ്യ തയുണ്ടെന്ന് മുന്നറിപ്പുകളെതുടർന്ന് തലസ്ഥാനത്തെ സുരക്ഷാ സന്നാഹ ങ്ങൾ വർദ്ധിപ്പിച്ചു ജെയ്ഷെ മുഹമ്മദ് ഭീകരപ്രവർത്തകർ ചാവേർ ആക്ര മണത്തിന് സന്നദ്ധരായി എത്തിയിട്ടു ണ്ടെന്ന് രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു പാക് ചാരസംഘടന ഐ

ഐയുടെ പിന്തുണയോടെ ആക്രമണം ഉണ്ടാകുമെന്ന രഹസ്യാനേ ഷണ റിപ്പോർട്ടും ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ കേന്ദ്ര ഗ്വൺമെന്റ് പ്രതിബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി മുക്തർ അബ്ബാസ് നഖ്വി ന്യൂഡൽഹിയിൽ പറഞ്ഞു കേന്ദ്രഗവൺമെന്റ് ഇതിനായി നടപ്പാക്കുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ പ്രയോജനപ്പെടുത്താൻ അവർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഒക്ടോബറിൽ നടത്തേണ്ടിയിരുന്ന ദൌത്യം ജനുവരിക്കു മുൻപ് നടക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന

ന സംവരണത്തിലൂടെ തൊഴിൽ ലഭിക്കുമെന്നതിന് യാതൊരു ഉറ പ്പുമില്ലെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു സാങ്കേതിക വിദൃയുടെ വികാസംമൂലം തൊഴിലവസരങ്ങൾ കുറയുകയാണെന്ന് മന്ത്രി മഹാ രാഷ്ട്രയിലെ ഔറംഗബാദിൽ പറഞ്ഞു സംവരണ പ്രശ്നങ്ങൾ ഉയർത്തു ന്നതിനുപിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളാണ് പാവപ്പെട്ടവരിൽ ജാതി മത വിവേചനമില്ല എല്ലാമതത്തിലും ജാതിയിലുംപെട്ടവർക്കിടയിൽ പാവപ്പെട്ടവരുണ്ടെന്നും ഗഡ്കരി അഭിപ്രായപ്പെട്ടു ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് രണ്ട് ലക്ഷം രൂപ ഗവൺമെന്റ് സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ അറിയിച്ചു

ശസ്ത്രക്രിയ സംസ്ഥാനത്തിനകത്തോ പുറത്തോ ആകാം അധികതുക ആവശ്യമായി വരുന്നവർക്ക് കൂടുതൽ പരിശോധനകൾക്കു ശേഷം തുക അനുവദിക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂട്ടി ച്ചേർത്തു മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേ രിയുമായും ബിഷപ്പ് ജേക്കബ് മനന്തോടത്തുമായും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി കൂടി ക്കാഴ്ച സൌഹാർദ്ദ പരമായിരുന്നു വെന്ന് അദ്ദേഹം പറഞ്ഞു ജലന്ധർബിഷപ്പിനെതിരായ പരാതിയിൽ പൊലീസ് അന്വേഷണം നടക്കുക യാണ്

മൂന്ന് രൂപയ്ക്ക് അരിയും രണ്ട് രൂപയ്ക്ക് ഗോതമ്പും സബ്സിഡി നിരക്കിൽ നൽകുന്ന പദ്ധതി അടുത്ത വർഷം ജൂൺ വരെ തുടരുമെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ പറഞ്ഞു

ഇതിന്റെ ഭാഗമായി വിപുലമായ വികസന പരിപാ ടികൾ നടപ്പാക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് ലോക ബാഡ്മിന്റൺ ചാമ്പൃൻഷിപ്പ് വനിതാ സിംഗിൾസിന്റെ കിരീട പോരാട്ടം ഇന്ന് ചൈനയിലെ നാൻജിങ്ങിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും സ്പെയിൻ താരം കരോലിന മാരിനും തമ്മിലാണ് മത്സരം സെമിയിൽ ജപ്പാന്റെ അകാനെ യമഗുച്ചിയെയാണ് സിന്ധു തോൽപ്പിച്ചത്

ചരക്കുമായെത്തുന്ന എല്ലാ വാഹന ങ്ങളും തടഞ്ഞു നിർത്തി ബിൽ പരിശോധിക്കാനാണ് ജി എസ് ടി സ്കാഡുകൾക്ക് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽക്കിയിരിക്കുന്നത്

ബസ്സുകളും ചരക്കുവാഹനങ്ങളും ഓട്ടോ ടാക്സി വാഹനങ്ങളും ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് കോ ഓർഡി നേഷൻ കമ്മറ്റി കോഴിക്കോട്ട് അറിയിച്ചു തിരുവനന്തപുരത്ത് പൊലീസ് ഡ്രൈവറെ മർദ്ദിച്ചകേസിൽ എ

ജി

കാട്ടാക്കട മജിസ്ട്രേറ്റ് കോട തിയിലാണ് ഡ്രൈവർക്കെതിരായ പ്രാതിയിൽ മൊഴി നൽകിയത്

നീരൊഴുക്ക് കുറഞ്ഞതോടെ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ മൂന്നു സെന്റീമീറ്റർ താഴ്ത്തി വെള്ളമൊഴുക്കിന്റെ തോത് കുറച്ചു

ഷട്ടറുകൾ തുറന്നതോടെ മലമ്പുഴയിൽ വൈദ്യുതോത്പാദനവും ആരംഭിച്ചു

എസ്

ബി ലക്ഷ്യമിടുന്നത് റോഡുകളുടെ തകർച്ച പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ചെർപ്പു ളശ്ശേരി ഒറ്റപ്പാലം റൂട്ടിൽ ഈ മാസം എട്ടുമുതൽ സ്വകാര്യ ബസ്സുകൾ നടത്താനിരുന്ന അനിശ്ചിതകാല ട പണിമുടക്ക് മാറ്റിവച്ചു മഴ മാറിനിന്നാൽ തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുമെന്ന സ്ഥലം എം എൽ എ യുടെ ഉറപ്പിനെ ത്തുടർന്നാണ് സമരം മാറ്റിയതെന്ന് ബസ് ഉടമ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു ഓണക്കാലത്ത് വ്യാജമദൃത്തിന്റെ ഒഴുക്ക് തടയാൻ കണ്ണൂർ ജില്ലയിൽ നടപടികൾ ആരംഭിച്ചു എക്സൈസ് വകുപ്പും പൊലീസും സംയുക്ത മായാണ് പരിശോ ധന നടത്തുന്നത് താലൂക്ക്തലങ്ങളിൽ പ്രത്യേക കൺട്രോൾ റൂമും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കാസർക്കോട്ട് മദ്രസ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു

സഹപാഠിയെ പൊലീസ് കസ്റ്റഡിയി ലെടുത്തു

പുതുതായി റേഷൻ കാർഡെടുക്കൽ പേര് ചേർക്കൽ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ഓൺലൈനായി ചെയ്യാൻ സാധിക്കും

കൂത്തുപറമ്പ് സ്വദേശി ഫൈസലാണ് പിടിയി ലായത്